പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി

വാക്സിൻ വിതരണം ച്ചെയ്ത്തായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം

കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ ന് സാഹചര്യത്തിൽ നാളെ മുതൽ രാത്രികാല കർഫ്യൂ

തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു

രാജസ്ഥാൻ റോയൽസ് പോരാട്ടം

മുൻനിര മരുന്നു നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട് നേരത്തെ ൃ പ്രിവീധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും രാജ്യത്ത്ത് കോവിഡ് സ്ഥിതി സംബന്ധിച്ച് പ്രധാനമന്ത്രി ആശയവിസ്സിമ്യർ നടത്തിയിരുന്നു

രാജ്യത്ത് കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ വഴികൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിങ്ങ് കത്തെഴുതിയ പശ്ചാത്തലത്തിലാണ് ഡോ

മൻമോഹൻ സിങ്ങിന്റെ കത്ത് സർക്കാർ സ്വാഗതം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു അതേസമയം ശാസ്ത്രജ്ഞരോടും പ്രതിരോധ മരുന്ന് ഉത്പാദകരോടും ഒരു നന്ദി വാക്ക് പോലും പറയാത്ത കോൺഗ്രസ് പാർട്ടിയെ ഡോ

കേരളത്തിന് പുറമെ ഡൽഹി രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഗോവ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് നിർദ്ദേശങ്ങൾ നൽകിയത് റെയിൽവേ അധികൃതരും ദുരന്ത നിവാരണ വിഭാഗവും ഇവർ കോവിഡ് മാനദണ്ഢങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കും

ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ഗേറ്റിലൂടെയാകും പുറത്ത് പോകാൻ അനുവദിക്കുക

ടി

സി

ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇന്ന് രാത്രി പത്ത് മണി ്മുതൽ പ്രാബല്യത്തിൽ വരും

ഡൽഹി ഗവർണ്ണറുമായുളള കൂടിക്കാഴ്ചയ്ക്കു ശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ലോക്ഡൌൺ ഏർപ്പെടുത്തുന്ന കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ അവശ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അടിയന്തിര സാഹചര്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവരെയും തടയില്ല

മരുന്നുകൾക്കും ആശുപത്രി കിടക്കകൾക്കും ഓക്സിജനും ക്ഷാമം നേരിടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മഹാമാരിക്കാലത്ത് ആവശ്യമായ സഹായം നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന് ശ്രീ

ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം

വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു ്നിന്നും സംസ്ഥാനത്ത് എത്തുന്നവർ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ആർ

സി ആർ പരിശോധന നിർബന്ധമാക്കി

ടി പി സി ആർ പരിശോധന നടത്തണം

കോഴിക്കോട് എറണാകുളം മലപ്പുറം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ

കൂടുതൽ വിവരങ്ങളുമായി പ്ലവീൺ കുമാർ

ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ്സും ബി ജെ

വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രധാന നേതാക്കൾ പ്രചാരണം സജീവമായി നടത്തുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പശ്ചാത്തലത്തിലാണിത്

ഇന്ത്യൻ നാവിക് സേനയുടെ സുവർണ എന്ന കപ്പൽ സമുദ്രാതിർത്തിയിൽ പരിഭുമ്പൂർന നടത്തുമ്പോഴാണ് ലഹരി പിടികൂടിയത്

അതേസമയം റെംഡെസിവിർ കരിഞ്ചന്തയിൽ വിൽക്കുന്നതും പൂഴ്ത്തിവയ്ക്കുന്നതും തടയാൻ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു

അതേസമയം ്കോവിഡ് വൈറസിന്റെ ഇരട്ട വകഭേദം മറ്റ് നിരവധി രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം